പ്രതിസന്ധിയെന്ന് കേന്ദ്ര മന്ത്രിസഭാ യോഗം

നാലരലക്ഷം ഡോസ് മരുന്നിന് ഓർഡർ നൽകി

ലോക്ഡൌൺ പരിഗണനയിലെന്ന് മുഖ്യമന്ത്രി

എല്ലിൽ ടോസ് നേടിയ ബംഗ്ളൂരു പഞ്ചാബിനെ ബാറ്റിംഗിന് അയച്ചു

പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അദ്ധ്യക്ഷതയിൽ ക്ക്ക് പ്രഖ്ച്ച്ലായി ചേർന്ന യോഗം രാജ്യത്ത് രണ്ടാം കോവിഡ് തരൂഹുപ്പ മൂലമുണ്ടായ സ്ഥിതിഗതികൾ വിലയിരുത്തി

രാജ്യത്തെ കോവിഡ് വെ്ല്ലുവിളികളെ സാധ്യമായ എല്ലാവിധത്തിലും പ്രതിരോധിക്കാൻ ഭരണകൂടം ശ്രമിക്കുമെന്ന് പ്രധാനമന്ത്രി യോഗത്തിൽ ഉറപ്പുനൽകി തങ്ങളുടെ മേഖലകളിലുള്ള ജനങ്ങളുമായി തുടർച്ചയായ ബന്ധം പുലർത്തണമെന്ന് അദ്ദേഹം കേന്ദ്രമന്ത്രിമാർക്ക് നിർദ്ദേശം നൽകി

കോവിഡ് മഹാമാരിയെ പ്രതിരോധിക്കാൻ രാജൃത്തെ ജനങ്ങളുടെ പിന്തുണ ആവശ്യമാണെന്ന് വിലയിരുത്തിയ മന്ത്രിസഭാ യോഗം ഈ വെല്ലുവിളിയെ ഇന്ത്യ മറികടക്കുമെന്ന് പ്രത്യാശ പ്രകടിപ്പിച്ചു

ആവശ്യത്തിന് വാക്സിനുകൾ ലഭ്യമായ്തിനുശേഷം മാത്രമെ വാക്സിനേഷൻ ആരംഭിക്കുകയുള്ളൂവെന്ന് ജമ്മു കശ്മീർ വക്താവ് ടിറ്ററിലൂടെ അറിയിച്ചു

രാജ്യത്ത് റംഡെസിവിർ ക്ഷാമത്തെ തുർന്നാണ് മരുന്ന് ഇറക്കുമതി ചെയ്യാൻ തീരുമാനിച്ചതെന്ന് കേന്ദ്ര രാസ വസ്തു വള മന്ത്രാലയം വ്യക്തമാക്കി കൂടുതൽ വിവരങ്ങളുമായി അമൃത വോയിസ് സർക്കാർ ഉടമസ്ഥതയിലുള്ള എച്ച് എൽ എൽ ലൈഫ് കെയർ ലിമിറ്റഡ് നാലര ലക്ഷം ഡോസ് മരുന്നുകളാണ് ഓർഡർ ചെയ്തിട്ടുളളത്

എ യിലെ ഗിലഡ് സയൻസസ് ഐ

സി ഈജിപ്ഷ്യൻ മരുന്ന് കമ്പനിയായ ഇവാ ഫാർമ എന്നിവയ്ക്കാണ് മരുന്നിനുള്ള ഓർഡർ നൽകിയിരിക്കുന്നത് ഗിലഡ് സയൻസസ് ഐ

ഇവാ ഫാർമ ആദ്യം പതിനായിരം ഡോസ് മരൂന്ന് നൽകും തുടർന്ന് അമ്പതിനായിരം ഡോസ് മരുന്നും എത്തുക്കും

രാജ്യത്ത് റംഡെസിവീർ മരുന്നിന്റെ ഉത്പാദനം വർധിപ്പിക്കാനുള്ള നടപികൾ ആരംഭിച്ചതായി കേന്ദ്രം അറിയിച്ചു ലൈസൻസുള്ള ഏഴ് നിർമ്മാതാക്കൾ പ്രതിമാസം ഒരു കോടി മൂന്നു ലക്ഷം ഡോസ് നിർമ്മിക്കാനുള്ള ശ്രമത്തിലാണ്

ഏറ്റവും കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ചത് കോഴിക്കോട് ജില്ലയിലാണ്

നിയന്ത്രണങ്ങൾ കൂടുതൽ കർശനമാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഹോട്ടലുകളിൽ നിന്നും റെസ്റ്റോറന്റുകളിൽ നിന്നും പാഴ്സൽ മാത്രമേ നൽകാവൂ

എയർപോർട്ട് റെയിൽവേ യാത്രക്കാർക്ക് തടസ്സമുണ്ടാവില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

കോവിഡ് അതിതീവ്ര വ്യാപനം നടക്കുന്ന സാഹചരൃത്തിലും ജനിതകമാറ്റം വന്ന വൈറസ് വളരെ പ്പെട്ടന്ന് രോഗ സംക്രമണം നടത്തുമെന്നതിനാലുമാണ് നിയന്ത്രണം

വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ പാലിക്കേണ്ട മീർഗ്ഗ്നിർദേശങ്ങളും വോട്ടെണ്ണൽ ഉദ്യോഗസ്സ്മർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ആരോഗ്യ വകുപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്

സി എം ആർ അംഗീകരിച്ച ടെസ്റ്റ് കിറ്റുകൾ കുറഞ്ഞ നിരക്കിൽ വിപണിയിൽ ലഭൃമായ സാഹചരൃം വിലയിരുത്തിയാണ് പരിശോധനാ നിരക്ക് കുറച്ചത്

ഈ നിരക്ക് പ്രകാരം മാത്രമേ ഐ സി എം ആർ സംസ്ഥാന അംഗീകൃത ലബോറട്ടറികൾക്കും ആശുപത്രികൾക്കും പരിശോധന നടത്താവൂ എന്ന് ആരോഗ്യമന്ത്രി കെ

ശൈലജ അറിയിച്ചു

ടോസ് നേടിയ ബാംഗ്ളൂർ റോയൽ ചലഞ്ചേഴ്സ് ബോളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു

നിലവിൽ പോയിന്റ് പട്ടികയിൽ മ്മൂന്നാം സ്ഥാനത്താണ് ബെംഗളുരൂ

രാജ്യത്തിന്റെയും ലോകത്തിന്റെയും പുരോഗതിയ്ക്കായി സ്ഥിരോത്സാഹത്തോടെ തൊഴിലെടുക്കുന്നവർക്ക് അദ്ദേഹം ആശംസ അറിയിച്ചു

അടുത്ത ഒരു വർഷത്തേക്കാണ് വാക്സിൻ വിതരണത്തിന് ഡ്രോൺ ഉപയോഗിക്കാൻ അനുമതി നൽകിയിരിക്കുന്നത് ഈ മാസം ആദ്യം ഐ ഐ ടി കാൺപൂറുമായി ചേർന്ന് ഡ്രോൺ ഉപയോഗിച്ചുള്ള വാക്സിൻ വിതരണത്തിന്റെ പ്രായോഗികത പഠിക്കുന്നതിനായി ഐ